വോട്ടെടുപ്പ് വൈകിട്ട് ആറുവരെ വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കർശന നട പടിയെന്ന് ഡി

ഹരിതചട്ടം പാലിച്ചായിരിക്കും സംസ്ഥാനത്ത് എല്ലാ ബൂത്തുക ളിലും വോട്ടെടുപ്പ് പോളിംഗ് സ്റ്റേഷനുകളുടെ നൂറ് മീറ്റർ പരിധി യിൽ പുകയില ഉപയോഗം നിരോധിച്ചു സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത

കെ സുരേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാംഘട്ട വോട്ടെടുപ്പ് അല്പ സമയത്തിനകം ആരംഭിക്കും

ഏഴ് ഘട്ടങ്ങളിലായി നട ക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡ ലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്

രണ്ടു ലക്ഷത്തി പതിനായിരത്തിലേറെ പോളിംഗ് ബൂത്തുകളാണ് ഒരു ക്കിയിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബി

പി അധ്യ ക്ഷൻ അമിത്ഷാ മല്ലികാർജ്ജുർ ഗാർഖെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഡോ ശശി തരൂർ കുമ്മനം രാജ ശേഖരൻ സി ദിവാകരൻ തുടങ്ങിയ പ്രമുഖർ ഇന്ന് ജനവിധി തേടു ന്നവരിൽപെടുന്നു രാവിലെ ഏഴുമണിക്കാരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് ആറിന് അവസാനിക്കും എല്ലാ ബൂത്തുകളിലും വി വി പാറ്റ് ഉപയോഗിക്കുന്നു എന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ് രാവിലെ ആറിന് ബൂത്തുകളിൽ മോക്പോളിംഗ് നടത്തി മിക്ക ബൂത്തുകളിലും വൻതോതിൽ വോട്ടർമാർ എത്തിത്തുടങ്ങിയ തായാണ് റിപ്പോർട്ട്

പശ്ചിമബംഗാളിലെ അഞ്ചും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലി ഡാമൻ ആന്റ് ഡ്യൂ എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലത്തിലും ഇന്ന് പോളിംഗ് നടക്കും

ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിൽ മൂന്ന് ഘട്ട മായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടവും ഇന്നാണ്

മലപ്പുറ ത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ

ഏറ്റവും കുറവ് വയ നാട് ജില്ലയിൽ അഞ്ചുലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നൂറ്റി എഴുപത്തി ഏഴ് പേർ രണ്ടുലക്ഷത്തി എൺപത്തി എട്ടാ യിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കന്നിവോട്ടർമാരാണുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിയേഴ് ഭിന്ന ശേഷി വോട്ടർമാർ ഉണ്ട്

സംസ്ഥാനത്ത് ഏറ്റവുമധികം കന്നിവോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്

പ്രശ്നബാധിത ബൂത്തുകളിൽ സായുധ പൊലീസിന്റെയും സൂക്ഷ്മ നിരീക്ഷകരുടെയും സാന്നിധ്യമുണ്ടാകും സംസ്ഥാനത്തെ വിദൂര പോളിംഗ് സ്റ്റേഷനായ ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ മൂന്ന് പോളിംഗ് ബൂത്തുകളുണ്ട്

വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡി

തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശ്യത്തോടെ കൂട്ടംകൂടി നിൽക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു എല്ലാ പോളിംഗ് ബൂത്തു കളിലും പരിസരങ്ങളിലും സുരക്ഷ ശക്തിപ്പെടുത്തിയതായും ഡി

ക്യാമറ സംഘങ്ങൾ നിരീക്ഷണം നടത്താത്ത പ്രശ്ന ബാധിത സ്ഥലങ്ങളിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുങ്ങി യതും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതുമായ സ്ഥലങ്ങളിൽ പൊലീസ് സംഘം ഇരുചക്രവാഹനങ്ങളിൽ പട്രോളിംഗ് നടത്തും

കണ്ണൂരിൽ പഴുതടച്ച സുരക്ഷയാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയത്

പോളിംഗ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഓരോ മണിക്കൂർ ഇടവിട്ട് പട്രോളിംഗ് നടത്തും ഹരിതചട്ടം പാലിച്ചായിരിക്കും എല്ലാ ബൂത്തുകളിലും വോട്ടെ ടുപ്പ് പ്ലാസ്റ്റിക്കും ഡിസ്പോസിബിൾ വസ്തുക്കളും ബൂത്തുക ളിൽ ഉൾപ്പെടെ പൂർണ്ണമായും ഒഴിവാക്കണ് മെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ പോളിംഗ് ബൂത്തുകളിൽ പുകയില ഉപ യോഗം നിരോധിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പോളിംഗ് സ്റ്റേഷനുകളിലെ നൂറുമീറ്റർ പരിധിയിൽ പുകയില ഉപ യോഗം നിരോധിച്ചത്

സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും കനത്ത വേനൽ മഴ ലഭി ച്ചു ഇന്നും ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്

ഉച്ചയ്ക്ക് രണ്ടുമണി മുതൽ വൈകിട്ട് എട്ടുമണി വരെ ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും ഇത്തരം ഇടി മിന്നൽ അപകടകരമാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഈ സമയത്ത് മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും ദുരന്ത നിവാ രണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമദ്ധ്യരേഖാ പ്രദേശത്തും അതി നോട് ചേർന്ന തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീല ങ്കയുടെ തെക്കുകിഴക്കുമായി വ്യാഴാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപം കൊള്ളുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയി ച്ചു ദോഹയിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം ദിനമായ ഇന്നലെ ഇന്ത്യ രണ്ട് സ്വർണ്ണം നേടി

രണ്ട് സ്വർണ്ണവും മൂന്ന് വെള്ളിയും ഉൾപ്പെടെ പത്ത് മെഡലുമായി ഇന്ത്യ ചാമ്പ്യൻഷി പ്പിൽ മൂന്നാം സ്ഥാനത്താണ് ജയ്പൂരിൽ ഐ

എൽ ക്രിക്കറ്റിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ച് ഡൽഹി ക്യാപി റ്റൽസ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി അവസാന ഓവറിലെ രണ്ടാം പന്തിലായിരുന്നു ഡൽഹിയുടെ ജയം ഇന്ന് രാത്രി എട്ടിന് ചെന്നൈ ഹൈദരബാദിനെ നേരിടും

കുളിമുറി യിൽ തെന്നിവീണെന്നായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കൾ മൃതദേഹം എത്തിച്ച മുക്കന്നൂരിലെ സ്ഥകാര്യ ആശുപത്രി അധി കൃതരെ അറിയിച്ചത്

കുട്ടിയുടെ ബന്ധുവിനെ സംഭ വവുമായി ബന്ധപ്പെട്ട് പൊലീസ് ചോദ്യം ചെയ്തുവരികയാണ് എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തി വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചുവെന്ന പരാതിയിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു

എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പൊലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കണ്ണൂർ ടൌൺ പൊലീസാണ് കേസെടുത്തത് ചീഫ് ഇലക്ടറൽ ഓഫീസർ നേരത്തെ സ്ഥാനാർത്ഥിയെ താക്കീത് ചെയ്യുകയും വീഡിയോ പിൻവലിക്കാൻ നിർദ്ദേശിക്കു കയും ചെയ്തിരുന്നു എന്നാൽ സ്ത്രീ വിരുദ്ധ പരാമർശം നട ത്തിയിട്ടില്ലെന്നും കേസ് രാഷ്ട്രീയ താല്പര്യംവെച്ചാണെന്നും അത് തെളിയിക്കുമെന്നും യു

എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു

എഫ് സ്ഥാനാർഥി സംസ്ഥാന തെരഞ്ഞെടുപ്പു കമ്മിഷന് പരാതി നല്കി ആറാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ആറ്റ് സംസ്ഥാന ങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലേയും നാമ നിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും

പാർട്ടി സംസ്ഥാന അധ്യക്ഷ ഷീല ദീക്ഷിത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും ഒളിംപിക് വെങ്കലതാരം വിജേന്ദ്ര സിംഗ് സൌത്ത് ഡൽഹിയിലും മത്സരിക്കും

പി മുൻ ക്രിക്കറ്റ് താരം ഗൌതം ഗ്രംഭീറിനെ ഈസ്റ്റ് ഡൽഹിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു

അതിനിടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും പത്രിക നൽകി ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ആല പ്പുഴയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്ക് എത്തിയ ഒട്ടേറെ ജീവന ക്കാർ ആശങ്കയിലാണ് ഇവർക്ക് അതത് പോളിംഗ് ബൂത്തുക ളിൽ വോട്ട് ചെയ്യാൻ അവസരം നഷ്ടമായി ആലപ്പുഴ മാവേ ലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിൽ നിരവധി പോളിംഗ് ഉദ്യോ ഗസ്ഥർ പരാതിയുമായെത്തി പോളിംഗ് സാമഗ്രികൾ നൽകുന്ന തിനൊപ്പം ഇ

സിയും നൽകേണ്ടതാണ് ആലപ്പുഴ ചേർത്തല നിയമസഭാ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഫോറം തികയാതെ വന്നതാണ് വിതരണം മുടങ്ങാൻ കാരണം കൊല്ലം കരുനാഗപ്പള്ളിയിൽ സി

എം പ്രവർത്തകനെ ബൂത്തിൽ കയറി ആക്രമിച്ച സംഭവത്തിൽ പൊലീസ് കേസെടുത്തു ചിറയിൽകുന്ന് ബൂത്തിൽ സ്ലിപ്പ് എഴുതാൻ നിയോഗിച്ച പ്രവർത്തകനാണ് മർദ്ദനമേറ്റത് രാഷ്ട്രീയമില്ലെന്നും അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടി പ്രശ്നമാണ് സംഭവത്തിന് പിന്നിലെന്നും പൊലീസ് വ്യക്തമാക്കി ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തി നിടെ ഉണ്ടായ സംഘർഷത്തിൽ എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു

എഫ് എൽ

എഫ് ബി

മുതിർന്ന മാധ്യമ പ്രവർത്തകനും വിവർത്തകനുമായ പി എം സുധാകരൻ കോഴിക്കോട്ട് നിര്യാതനായി